ജനതയെ രക്ഷിക്കാൻ ഇന്തൃയുംഅമേരിക്കയുംകൈകോർക്കുമെന്ന് പ്രസിഡന്റ്ഡോണൾഡ് ട്രംപ്

ദേശീയ യുദ്ധ സ്മാരക ദിനത്തിൽസംയുക്തസേനാ ന് മേധാവി ജനറൽ ബിപിൻ റാവത്തുംസായുധ സേനയിലെ പ്രമുഖരുംരാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കൾക്ക് ആദരാഞ്ജലിഅർപ്പിച്ചു

പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാകാൻ അമേരിക്ക ഒരുങ്ങുന്നതായി ഇന്നലെ അഹമ്മദാബാദിൽ നമസ്തേ ട്രംപ് മഹാസമ്മേളനത്തിൽ പ്രസിഡന്റ് ട്രംപ് പരാമർശിക്കുകയുായി

ര് ദിവസത്തെ ഇന്ത്യാ സന്ദർശനൃത്തീൻായി പത്നി മെലാനിയ പുത്രി ഇവാൻക മരുമകൻ ജേഡ് ഖുഷ്നീർ അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നീപ്പുർോടൊപ്പം അഹമ്മദാബാദിലെത്തിയ പ്രസിഡന്റ് ട്രംപിന് പ്രധാന്ത്മുന്തി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്

മീ റോഡ് ഷോ നടത്തിയ പ്രസിഡന്റ് ട്രംപ് സബർമതി ആശ്രമം സന്ദർശിച്ച് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു നമസ്തേ ട്രംപ് മഹാസമ്മേളനം ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ പുതിയ അധ്യായം കുറിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ അമേരിക്കയുടെ സ്വാഭാവിക പങ്കാളിയാണെന്ന് പറഞ്ഞ പ്രസിഡന്റ് ട്രംപ് നാനാത്വത്തിൽ ഏകത്വം കൊ് കരുത്താർജ്ജിച്ച ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെ പ്രകീർത്തിച്ചു ഇന്ത്യയുടെ സമാനതകളില്ലാത്ത വൈവിധ്യം ലോകത്തിന് ഒന്നടങ്കം പ്രചോദനമാണെന്ന് പ്രസിഡന്റ് ട്രംപ് അഭിപ്രായപ്പെട്ടു ആഗോള ഭീകരതയുടെ ഇരകളായ അമേരിക്കയും ഇന്ത്യയും അതിനെ നേരിടാൻ ഒരുമിച്ച് പോരാടുമെന്നും അദ്ദേഹം എടുത്തുപറഞ്ഞു പാകിസ്ഥാനിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ആ രാജ്യവുമായി അമേരിക്ക ചർച്ചയ്ക്ക് ഒരുക്കമാണെന്ന് പ്രസിഡന്റ് ട്രംപ് വൃക്തമാക്കി പിന്നീട് ആഗ്രയിലേക്ക് പോയ പ്രസിഡന്റ് ട്രംപും സംഘവും താജ്മഹൽ സന്ദർശിച്ച ശേഷം രാത്രിയോടെ ഡൽഹിയിൽ എത്തിച്ചേർന്നു

ഇന്ത്യയെ പരമാധികാരമുള്ള സുന്ദര രാഷ്ട്രമായി കെട്ടിപ്പടുക്കുക എന്ന ഗാന്ധിജിയുടെ ദർശനത്തോട് അമേരിക്കൻ ജനത് ചേർന്ന് നിൽക്കുന്നതായി പ്രസിഡന്റ് ട്രംപ്പ് രൂജ്ഘട്ടിലെ സന്ദർശക പുസ്തകത്തിൽ രേഖപ്പെടുത്തി പ്രിസ്റ്റീട് പ്രസിഡന്റ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുമായി ് ചർച്ചകൾക്കായി ദേശീയ തലസ്ഥാനത്തെ ഹൈദരാബാദ് ക്ട്രൌസിലേക്ക് പോയി

പ്രിക്കിഡന്റ് ട്രംപ് ഇന്ന് വൈകിട്ട് രാഷ്ട്രപതി രാംനാഥ് ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തും അമേരിക്കൻ പ്രസിഡന്റിനും സംഘത്തിനും ഇന്ന് രാഷ്ട്രപതി ഭവനിൽ അത്താഴ വിരുന്ന് ഒരുക്കും

ഡൽഹി സർക്കാർ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ച അവർ സന്തോഷ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു അമേരിക്കൻ പ്രഥമ വനിതയെ സ്വീകരിക്കാനായി വിദ്യാലയ പരിസരത്ത് വിവിധ തരം പുഷ്പാലങ്കാരങ്ങളും പൂക്കളങ്ങളും വിദ്യാർത്ഥികൾ നയിച്ച ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് മെലാനിയ ട്രംപിനെ സ്വാഗതം ചെയ്തത്

പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പുവരുത്താൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബെയ്ജാൽ സിറ്റി പോലീസ് കമ്മീഷ്ണറോട് നിർദ്ദേശിച്ചു

വടക്ക് കിഴക്കൻ ഡൽഹിയിലെ സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകി ഈ മേഖലയിലെ സി ബി എസ് ഇ പരീക്ഷകൾ മാറ്റിവയ്ക്കാൻ ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോഡിയ കേന്ദ്ര മാനവവിഭവ ശേഷി മന്ത്രി രമേശ് പൊഖ്രിയാലിനോട് അഭ്യർത്ഥിച്ചു എന്നാൽ ഈ മേഖലയിൽ സി ബി എസ് ഇ പരീക്ഷ കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ മുൻ നിശ്ചയിച്ചപോലില്ലു പരീക്ഷ നടക്കുമെന്ന് സി ബി എസ്

ഡൽഹി ലഫ്റ്റന്റ് ഗവർണർ അനിൽ ബേയ്ജൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ എന്നിവരെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്

രാവിലെ സംയുക്ത സേന ്മേധാവി ജനറൽ ബിപിൻ റാവത്തും കര നാവിക വ്യോമസേനകളിലെ മുതിർന്ന സേനാംഗങ്ങളും രാജ്യത്തിനായി ജീവൻവെടിഞ്ഞ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു കൃത്യനിർവ്വഹണത്തിനിടെ ധീരയോധാക്കളോടും വീരമൃത്യുവരിച്ച സുരക്ഷാ ജീവനക്കാരോടുമുള്ള രാജ്യത്തിന്റെ ആദരവാണ് യുദ്ധസ്മാരകമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ പറഞ്ഞു

രാജ്യസഭാ അംഗങ്ങളുടെ വിരമിക്കലിനെ തുടർന്ന് ഏപ്രിൽ മാസം ഇൌ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു

്ട് പ്രാട്ട് ഏപ്രിലിൽ വിരമിക്കുന്ന് പ്രമുഖരിൽ എൻസിപി നേതാവ് ശരത് പവാർ കേന്ദ്രമന്ത്രി രാമദാസ് അത്താവാലെ കോൺഗ്രസിലെ സമ്മുന്നതർ മോട്ടിലാൽ വോഹ്റ ദിഗ് വിജയ് സിംഗ് മുൻ കേന്ദ്രമന്ത്രി വിജയ് ഗോയൽ എന്നിവർ ഉൾപ്പെടുന്നു പരമാവധി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഏഴെണ്ണം

മൂന്നു വർഷ കാലാവധിയുള്ള ് കമ്മിഷൻ സുപ്രധാന നിയമ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് വിദഗ്ദോപദേശം നൽകും നിയമ കമ്മീഷന്റെ നിയമനം സംബന്ധിച്ച് രാഷ്ട്രപതിയുടെ അംഗീകാരമായതോടെ ഇനി ഗവൺമെന്റിന് കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കാം സുപ്രീം കോടതിയിൽ നിന്നോ ഹൈക്കോടതികളിൽ നിന്നോ വിരമിച്ച ജഡ്ജിമാരാവും കമ്മീഷൻ അധ്യക്ഷനാവുക

കഴിഞ്ഞ ആഴ്ചയാണ് പുതിയ ് കമ്മീഷനെ നിയമിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകിയത്

ഒഡീഷയിൽ നടക്കുന്ന മത്സരങ്ങൾ നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അമൃത്സറിലെ ഗുരുനാനാക്ക് സർവകലാശാലയാണ് മുന്നിൽ